വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈദരാബാദിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു

ശബരിമല യുവതി പ്രവ്യേശന് വിഷയത്തിലെ പുനഃപരിശോധന ഹർജിക്കൾ എപ്പോൾ പരിഗണിക്കണമെന്ന സുപ്രീംകോടതി ത്തീരുമാനം നാളെ

ഇന്ത്യൻ താരം ബജ്റംഗ് പുനിയ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കുന്ന ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ

ഡിസംബർ ഏഴിന് സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് സംഘം ഇന്ന് എത്തിയത് മൂന്ന് ദിവസം നീളുന്നതാണ് സന്ദർശനം ശ്രീ ഒ പി റാവത്തിന് പുറമേ കമ്മീഷണർമാരായ സുനിൽ അറോറ അശോക് ലാവാസാ എന്നിവരും ഉൾപ്പെടുന്നതാണ് സംഘം തൃരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് പോലീസ് മേധ്യവികളുമായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായൂം ഇ്ഖർ നാളെ ചർച്ച നടത്തും ആദായനികുതി എക്സൈസ് ക്ട്രൻഫോഴ്സ്മെന്റ് തുടങ്ങിയ വകുപ്പുകളിലെ മുതിർന്ന ഉദ്ദ്യീാഗസ്ഥരെയും സംഘം സന്ദർശിച്ച് ചർച്ചകൾ നടത്തും

മാതൃകാ പെരുമാറ്റ ചട്ടം നിലവിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹൃ മാധൃമ സന്ദേശങ്ങളും ആക്ഷേപാർഹമായ പ്രസ്താവനകളും നിരീക്ഷിച്ച് വരികയാണ് കമ്മീഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയത്ത് സ്ഥാനാർത്ഥിയുടെ സാമൂഹൃമാധ്യമ അക്കൌണ്ടിന്റെ വിശദാംശങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സുബ്രത് സാഹു പറഞ്ഞു മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് സാമൂഹ്യമാധ്യമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുന്നത് സാമൂഹ്യ മാധ്യങ്ങളിലൂടെ സ്ഥാനാർത്ഥികൾ നൽകുന്ന പരസ്യങ്ങളും ഇവരുടെ തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ശ്രീ സാഹു അറിയിച്ചു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ജസ്റ്റിസ് എസ്

ഇതേ തുടർന്ന് ബെഞ്ചിലെ അംഗങ്ങളായി മറ്റ് ജഡ്ജിമാരുമായി ചീഫ് ജസ്റ്റിസ് കൂടിയാലോചന നടത്തി പ്പുനപരിശോധനാ ഹർജികളും പുതുതായി സമർപ്പിക്കപ്പെട്ട് റ്റ്റിട്ടൂകളും എപ്പോൾ പരിഗണിക്കണമെന്ന കാര്യങ്ങ്ങളെ തീരുമാനിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് അറിയിക്കു്കയായിരുന്നു

ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കുന്നതിനായി ലോകോത്തര നിലവാരമുള്ള ഒരു പരിശോധന ശാല സംസ്ഥാനത്ത് സജ്ജമാക്കും സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുന്ന പരിശോധന ശാലകളും മായം ചേർക്കൽ സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാൻ ഓൺലൈൻ സൌകര്യവും ലഭ്യമാക്കും ഗോവൻ ജനതയ്ക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ശ്രീ അമിത് ഷായുടെ നേതൃത്വത്തിൽ പാർട്ടിക്ക് രാജ്യത്തെമ്പാടും നിർണ്ണായകമായ വളർച്ചയാണുണ്ടായതെന്ന് ട്വിറ്റർ സന്ദേശത്തിലൂടെ ശ്രീ

ശ്രീ ഷായുടെ കഠിനാദ്ധാനവും ആത്മാർത്ഥതയും പ്പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി ആശ്ര്സാ സന്ദേശത്തിൽ പറഞ്ഞു

നാളെ രാവിലെ അഞ്ചു മണി വരെയും പമ്പുകൾ അടച്ചിടുമെന്ന് ഡൽഹിയിലെ പെട്രോൾ വ്യാപാര സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു

പഞ്ചാബിലെ ജലന്ധറിനടുത്ത് സ്വകാര്യ സർവ്വകലാശാലയിലെ ബിരുദദാനചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് ജീവിക്കാനാവശ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അനുയോജ്യമായ വിദ്യാഭ്യാസം പരിശീലനം നൈപുണ്യം എന്നിവയുടെ സംയോജനത്തിലൂടെയേ ഇത് സാധ്യമാകൂ തൊഴിൽ അന്വേഷകർ എന്നതിനേക്കാൾ തൊഴിൽ ദാതാക്കളായി മാറാനുള്ള പ്രോത്സാഹനം വിദ്യാർത്ഥികൾക്ക് നൽകാൻ വിദ്യാലയങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഉപരാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ്

കോർപറേറ്റ് നികുതിദായകർ നൽകിയ ശരാശരി നികുതി തുകയിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂദൽഹിയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും ക്രൌയേഷ്യൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മരീജ പെജ്കിനോവികുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് വ്യാപാരം നിക്ഷേപം ആരോഗ്യം ശാസ്ത്ര സാങ്കേതികം വിനോദസഞ്ചാരം സംസ്കാരം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തി ബഹുകക്ഷി സഹകരണം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇരുനേതാക്കളും കൈമാറി ത്രിദിന ഇന്ത്യാ സന്ദർശനത്തിനായി ശനിയാഴ്ചയാണ് ക്രൊയേഷ്യൻ ഉപപ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തിയത്

പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗാസി ഘട്ട് മേഖലയിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് സംഭവത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഖേദം പ്രകടിപ്പിച്ചു

ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ ആരോഗൃ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നും പ്രകേന്ദ്രമന്ത്രി

ജലന്ധറിലെ റോ്മൻ കത്തോലിക്ക രൂപതാ അധ്യക്ഷനായ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ്

കുരിയാക്കോസ് കേസിൽ കന്യാസ്ത്രീക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയിരുന്നത്

കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് മേഖലയിൽ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ അവബോധ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ സഹകരണവും കൂടുതൽ മനുഷത്വപരമായ സഹായങ്ങളും ഉറപ്പാക്കാൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് അംഗരാജ്യങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനായി തീരദേശ റഡാർ സംവിധാനം നടപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന ശ്രമിച്ചുവരികയാണെന്ന് റിയർ അഡ്മിറൽ അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ പുരോഗതിക്ക് സമാധാനപൂർണ്ണമായ സമുദ്ര മേഖല കൂടിയേ തീരു എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ശ്രീലങ്കൻ നാവികസേനകൾ തമ്മിൽ മെച്ചപ്പെട്ട സഹകരണമാണ് നിലനിൽക്കുന്നതെന്നും റിയർ അഡ്മിറൽ ചൂണ്ടിക്കാട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ യൂത്ത് ഒളിമ്പിക് ഗെയിംസിന്റെ വിജയികളെ ആദരിക്കുകയായിരുന്നു അദ്ദേഹം